രാംനാഥ് കോവിന്ദ് ഇന്ന് ഗുരുവായൂർ സന്ദർശിക്കും

മൂന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ സൂപ്രീം കോടതി ന് ജഡ്ജിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

ഹെറോയിൻ പിടികൂടി

കൂടുതൽ വിവരങ്ങളുമായി ഷീല

സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ ഉയർച്ച ബിൽ ഉറപ്പു വരുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി താവർചന്ദ് ഗഹ്ലോട്ട് പറഞ്ഞു ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയ്യർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിലും ബിൽ പാസ്സാക്കുന്നത്രിലൂർ അംഗങ്ങൾ കാണിച്ച ശുഷ്ക്കാന്തിയെ മന്ത്രി അഭിനന്ദിച്ചു അധൃക്ഷൻ ഉപാദ്ധ്യക്ഷൻ എന്നിവരെ കൂടാതെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉണ്ടാവുക

രാജ്യത്തെ ഒ ബി സി

പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള ഭേദഗതികൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്

മാനഭംഗ കേസുകൾ വനിതാ ജഡ്ജി കൈകാര്യം ചെയ്യാനും മൊഴി രേഖപ്പെടുത്തുന്നതിന് വനിതാ പോലീസ് ഓഫീസറെ നിയോഗിക്കാനും ബില്ലിൽ വൃവസ്ഥയുണ്ട് ബലാൽസംഗ കേസുകളിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമൃം ലഭൃമാകില്ലെന്നും കേന്ദ്രമന്ത്രി ചർച്ചയ്ക്കിടെ അറിയിച്ചു

അഭിപ്രായ സമന്വയത്തിലൂടെ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം രാജ്യസഭയോട് അഭ്യർത്ഥിച്ചു നാളെ ഉച്ചവരെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാം

കുര്യൻ വിരമിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

ഈന്ന് രാവിലെ ബോൾഗാട്ടി പാലസിൽ കേരളാ ഹൈക്കോട്ടതി ചീഫ് ജസ്റ്റിസുമായും മറ്റ് ജഡ്ജിമാരുമായും കൂടിക്കാഴ്ച നടിത്തും പിന്നീട് തൃശൂരിലെത്തുന്ന രാഷ്ട്രപതി തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഫ്ങ്കെടു്ക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും

ഇന്നലെ തിരുവനന്തപുരത്ത് നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജനാധിപതൃത്തിന്റെ ഉൽസവം പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് രാഷ്ട്രപതി കൊച്ചിയിലേക്ക് പോയത്

എം എസ്

ഓട്ടോറിക്ഷകൾ ടാക്സികൾ ചെറുകിട വാഹനങ്ങൾ സ്വകാര്യ ബസ്റ്റുകൾ ചരക്ക് കടത്ത് വാഹനങ്ങൾ എന്നിവയും പണിമുടക്കിൽ പങ്കെടുക്കുന്നു ദേശീയ വാഹന പണിമുടക്കിനെ തുടർന്ന് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ ആരോഗ്യ സർവ്വകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു

സി പരീക്ഷകൾക്ക് മാറ്റമില്ല അതിനിടെ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കെ

കെ അധ്യക്ഷനുമായ എം കരുണാനിധിയുടെ ആരോഗ്യനില മോശമായതായി മെഡിക്കൽ ബുള്ളറ്റിൻ

കരുണാനിധിയുടെ ആരോഗ്യാവസ്ഥ തിങ്കളാഴ്ച രാവിലെയാണ് വഷളായത് വാർധകൃസഹജമായ അവശതകളുള്ളതിനാൽ ശരീരം മരുന്നുകളോട് വേണ്ട വിധം പ്രതികരിക്കുന്നില്ലെന്നാണ് ഇന്നലെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചത്

മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് ഇന്ദിര ബാനർജി ഒറീസ ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് വിനീത് സരൺ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് കെ

ജോസഫ് എന്നിവരാണ് ഇന്ന് സുപ്രീംകോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് സൈനിക അഭ്യാസം ഇത് പരസ്പരപ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തീവ്രവാദം സംബന്ധിച്ച വെല്ലുവിളികളെ നേരിട്ടുന്നതിനും സഹായകമാകുമെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അറിയിച്ചു

എൻ ഉത്തരവ് പ്രകാരം തീവ്രവാദത്തെ തടയുന്നതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ സാങ്കേതികത മെച്ചപ്പെടുത്തുന്നത് കൂടി കണക്കിലെടുത്താകും പരിശീലനമെന്നും അദ്ദേഹം പറഞ്ഞു

മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്ക്വെ ബത്തിന്ദി പ്രദേശത്തു നിന്നും ഇവരുടെ ലോറി പിടിക്കുകയായിരുന്നുവെന്ന് ഐ

സമീപകാലത്ത് ഇതാദ്യമായാണ് ഇത്രയും വലിയ തോതിൽ മയക്കുമരുന്ന് ഇവിടെ നിന്നും പിടിക്കൂടുന്നത്

ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയതാണെന്ന് പ്രാഥമിക നിഗമനം

ഇന്ത്യയിൽ നിന്ന് വിദേശത്തേയ്ക്കും തിരിച്ചും ഒമാൻ എയർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രവാസി മല യാളികൾക്കായുള്ള പദ്ധതിയാണ് നോർക്ക ഫെയർ വിമാന ടിക്കറ്റ് അടിസ്ഥാന നിരക്കിൽ ഏഴു ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ് ഈ പദ്ധതി നോർക്ക റൂട്ട്സിന്റെയും ഒമാൻ എയറിന്റെയും വെബ്സൈറ്റ് ഒമാൻ എയറിന്റെ ഇന്ത്യയിലെ ഓഫീസുകൾ ഓൺലൈൻ ലിങ്കുകൾ എന്നിവ വഴി ഈ സൌകര്യം വിനിയോഗിക്കാം അസുഖ ബാധിതരായി നാട്ടിലേക്ക് മടങ്ങുന്ന വിദേശ മലയാളികളെ കേരളത്തിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേയ്ക്കോ ആശുപത്രിയിലേക്കോ എത്തിക്കുന്നതിനും പ്രവാസികളുടെ ഭൌതികാവശിഷ്ടം വിമാനത്താവളത്തിൽ നിന്നും വീട്ടിൽ എത്തിക്കുന്നതിനും ആംബുലൻസ് സർവീസ് ആരംഭിച്ചതായി നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കെ വരദരാജൻ പറഞ്ഞു

സംവരണവുമായി ബന്ധപ്പെട്ട് മറാത്ത വിഭാഗം നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്ത്ലത്തിലായിരുന്നു കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി മറാത്ത സംവരണ വിഷയത്തിൽ ഭരണഘടനയ്ക്ക് അനുസരണമായ രീതിയിൽ നവംബറോടു കൂടി തീരുമാനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കഴിഞ്ഞ ദിവസം ഉപ്പു നൽകിയിരുന്നു

കായിക കോഡ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു

ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം

വാർദ്ധകൃ സഹജമായ അസുഖമാണ് മരണകാരണം